ഐകൃരാഷ്ട്രസഭ സൂര്ക്ഷ ക്ൌൺസിലിൽ ഭീകരവാദികളെയും ് കൂലംഗിക ആയുധ അതിക്രമങ്ങളിൽ പൂ ഉൾപ്പെട്ട ഭീകരവാദ ഗ്രൂപ്പുകളെയും നേരിടാനുള്ള സ്ന്ന്ദ്ധത വൃക്തമാക്കി ഇന്ത്യ

ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസൊ ആബെയുമായുള്ള അഞ്ചാമത്തെ വാർഷിക ഉച്ചകോടിയാണിത് ഇത് പന്ത്രണ്ടാം തവണയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്

ആരോഗ്യം കൃഷി സാങ്കേതിക വിദ്യ ദുരന്ത നിവാരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചും ചർച്ചു നടത്തുമെന്ന് അദ്ദേഹം കുട്ടിച്ചേർത്തു

കൂടാതെ വാണിജ്യമേഖലയിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ജപ്പാനിലെ വ്യവസായ പ്രമുഖർക്ക് മുന്നിൽ ഇന്ത്യയിലെ ആകർഷകമായ നിക്ഷേപ സാധ്യതകൾ പ്രധാനമന്ത്രി വിവരിക്കും ടോക്കിയോയിൽ നടക്കുന്ന മേക് ഇൻ ഇന്ത്യ പരിപാടി ശ്രീ മോദി അഭിസംബോധന ചെയ്യും

മട്ടന്നൂർ വിമാനത്താവളത്തിൽ പതിനൊന്നരയോടെ എത്തിയ അദ്ദേഹം കണ്ണൂർ നഗരത്തിലെ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള എച്ച് രാജ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു

ബലിദാനികളുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പിണറായിയിലേക്ക് പോകുന്ന ശ്രീ അമിത്ഷാ ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകും

സമാധാന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് ഇപ്പോഴും അവഗണിക്കപ്പെടുകയാണെന്ന് ഐകൃരാഷ്ട്രസഭയിലെ ഇന്തൃൻ സ്ഥിര ദൌത്യ സെക്രട്ടറി പൌലോമി തൃപതി പറഞ്ഞു

എൻ രക്ഷാ കൌൺസിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ സ്ത്രീ സമാധാനം സുരക്ഷ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അതീവ ആശങ്കയുണ്ട് ഭീകരവാദ സംഘടനകളുടെ ആയുധ ആക്രമണങ്ങളും മനുഷ്യക്കടത്തും ഇപ്പോഴും തുടരുകയാണെന്നും സെക്രട്ടറി അഭിപ്രായപ്പെട്ടു

ശ്രീനഗറിലെ വഗോര ന്നൌഗാമിലെ പവർഗ്രിഡ് സ്റ്റേഷനിലെ സി ഐ എസ് എഫ് ഗാർഡ് പോസ്റ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് സുരക്ഷ്യാ ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആക്രമണത്തിൽ ഗുരുതരമാീയു പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു

ആക്രമണത്തിന്റെ ഉത്ത്രവാദിത്തം ഒരു ഭീകര സംഘടനകളും ഏറ്റെടുത്തിട്ടില്ല

കാർഗിൽ ലേ ഉൾപ്പെടെ കശ്മീർ മേഖലയിലെ ഒൻപത് ജില്ലകളിലും ജമ്മുവിലെ ഏഴ് ജില്ലകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഔദ്യോഗിക വക്താവ് അറിയിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാനദിവസം അടുത്തമാസം രണ്ടാണ്

നിലവിലുള്ള ഉപഭോക്താക്കളുടെ കീഴ്ച്ചത്തിലും പുതിയ കണക്ഷൻ നൽകുന്ന കാര്യത്തിലും നിർദ്ദേശം ബാധകമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം

ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെയാണ് അവസാനിച്ചത്

മുഴുവൻ സീറ്റുകളിലും പാർട്ടി സ്ര്യ്ഥാഗാർത്ഥികൾ മത്സരിക്കുമെന്ന് ബി എസ് സംസ്ഥാന പ്രസീഡന്റ് പ്രദീപ് അഹിർവാർ ഇന്നലെ പി പ്രഖ്യാപിച്ചിരുന്നു

വടക്കു കിഴക്കൻ കൌൺസിൽ വടക്കു കിഴക്കൻ മേഖല വികസന മന്ത്രാലയം സംയോജിച്ചാണ് വടക്കുകിഴക്കിനെ അനുഭവിച്ചറിയൂ എന്ന ഉൽസവം സംഘടിപ്പിക്കുന്നത് വടക്കു കിഴക്കൻ മേഖലയുടെ നാനാത്വമുള്ള സംസ്കാരവും പൈതൃകവും സംയോജിപ്പിച്ചുള്ള പ്രദർശനമാണ് ഉൽസവം ലക്ഷ്യമിടുന്നത് വടക്കു കിഴക്കൻ മേഖലയുടെ ഊർജ്ജസ്വലത മികവുകൾ ക ല കരകൌശലം കൈത്തറി ടൂറിസം സംസ്കാരം ഭക്ഷണം എന്നിവ ഉൽസവത്തിൽ പ്രദർശിപ്പിക്കും മേഖലയിൽ നിന്നുള്ള ചലച്ചിത്രമേളയും ഉൽസവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്

കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി വിഭവ ശോഷണം തുടങ്ങി വിവിധ വിഷയങ്ങളാണ് പരിഗണിച്ചതെന്ന് സമിതി അധ്യക്ഷൻ ഉത്തർപ്രദേശ് ഗവർണർ രാംനായിക് പറഞ്ഞു

പ്രത്യേക കാർഷിക മേഖലകൾക്കും തെരഞ്ഞെടുക്കപ്പെട്ട വിളകൾക്കും പ്രോത്സാഹനമായി സഹായധനം നൽകണമെന്ന് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്

മണിപ്പൂരി നൃത്ത രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം

റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഹിന്ദുസ്ഥാൻ എയ്റോ നോട്ടിക്സ് ലിമിറ്റഡാണ് സുഖോയ് യുടെ നിർമാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എയർമാർഷൽ ഹേമന്ദ് ശർമ്മ സൌത്ത് വെസ്റ്റേൺ എയർ കമാന്റിംഗ് ഓഫീസർ എയർമാർഷൽ എച്ച്

അറോറയ്ക്ക് സുഖോയ് എസ് യു വിന്റെ രേഖകൾ കൈമാറി

പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ യുണൈഡ് പീപ്പിൾസ് ഫ്രീഡം അലയൻസ് സഖ്യകക്ഷി ഗ്ലൂൺ ്റ്റ്റ്മെന്റിനുള്ള പിന്തുണ പിൻവലിച്ചതോടെ റെനിൽ വിക്രിമൂസീംഗെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് പുറത്തായി പ്ര ഭരണഘടന അനുസരിച്ച് പ്ലൂക്തമായ ഭൂരിപക്ഷം തെളിയിക്കാതെ പ്രധാനമന്ത്രിയെ പുറത്ത്റ്ക്കാനാവില്ലെന്ന് ശ്രീലങ്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ടു ചെയ്തു

ഇതേ തുടർന്ന് പലസ്തീൻ ഭീകരവാദികൾ ദക്ഷിണ ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി

ആദ്യ മത്സരം മുതൽ വിജയിച്ച ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെയാണ് ഏഷ്യൻ ഗെയിംസിലെ സുവർണ ജേതാക്കളായ ജപ്പാനുമായി ഏറ്റുമുട്ടുന്നത്

ലോക ഒന്നാട്ട നമ്പർ താരം തായ് സു ഇംങിനോടാണ് സൈന കീഴടങ്ങിയത്ത് പ്രില്ലോക ചാമ്പ്യൻ കെന്റോ മൊമോറ്റയാണ് ശ്രീകാന്തിനെ പ്രാജ്യ്പ്പെടുത്തിയത് ഇന്ന് നടക്കുന്ന പുരുഷവിഭാഗം സിബ്ബിൾസ് സെമി മത്സരത്തിൽ ഇന്ത്യയുടെ സാത്പിക് ്സാർയ് രാജും ചിറാക് ഷെഡ്ഡിയും ഇന്തോനേഷ്യൻ താരങ്ങളുമാർയി ഏറ്റുമുട്ടും